കൊറോണ രോഗബാധ നിയന്ത്രണം വിഷയമാക്കി ചേരുന്ന സാർക്ക് രാജ്യങ്ങളുടെ സമ്മേളനത്തെ പ്രധാനമന്ത്രി നീര്യേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

തുടരുന്നു പ്രതിരോധ നിര്യീക്ഷണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം

ഈ വർഷത്തെ ഐ

സി

ഐ പ്രസിഡന്റ് സൌരവ് ഗാംഗുലി

ഗവർണറുടെ അഭിസംബോധനക്കുശേഷം വിശ്വാസവോട്ടെടുപ്പ് നടത്താനാണ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ നിർദേശിച്ചത്

ജെ

ജെ പി നേതാക്കളായ ഗോപാൽ ഭാർഗവ ശിവ്രാജ് സിംഗ് ചൌഹാൻ നരോത്തം മിശ്ര ഭൂപേന്ദ്ര സിംഗ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഗവർണറെ കണ്ടത്

എൽ എ

ഇതേതുടർന്ന് ന്യൂനപക്ഷമായ കമൽന്ന്റ്യ്സർക്കാരിന് ഭരിക്കാൻ ഭരണഘടനാപരമായ അധികാരമില്ല്യുന്നും ശിവ്രാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു

വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ചേരുന്ന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും

കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ശക്തമായ ഒരു നയത്തിന് രൂപം നൽകാൻ സാർക്ക് നേതാക്കൾ ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി വെള്ളിയാഴ്ച അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്താമെന്ന ആശയവും അദ്ദേഹം ട്വിറ്ററിലൂടെ പങ്കു വച്ചിരുന്നു മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള എല്ലാ വഴികളും ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടും

പ്രതിരോധ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

എന്നാൽ ജാഗ്രതയും നിയന്ത്രണങ്ങളും തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി

സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഫലപ്രദമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു പുതുതായി ആവശ്യമായി വരുന്ന സന്നദ്ധപ്രവർത്തകർക്ക് അടിയന്തിരമായി പരിശീലനം നൽകുന്നതിന് ആരോഗ്യവകുപ്പ് പ്രദേശികമായി നടപടിയെടുക്കും

ഇതുവഴി ദുരന്തനിവാരണ ഫണ്ടിന്റെ വലിയൊരു പങ്ക് സംസ്ഥാനങ്ങൾക്ക് അടിയന്തിര കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാം

സംയോജിത രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പ്രദേശത്തെ ജനാധിപത്യം ശക്തിപ്പെടുത്താനാവുമെന്നും പ്രധാനമന്ത്രീകൂട്ടിച്ചേർത്തു

കുപ്വാര ജില്ലയിലെ വിൽഗാം പ്രദേശത്തെ ഷെയ്ഖ്പോറ നിവാസികളായ നസീർ അഹമ്മദ് വാനി ബഷീർ അഹമ്മദ് വാനി എന്നിവരാണ് പിടിയിലായത് ഒരു എ

റൈഫിൾ ഒരു ചൈനീസ് പിസ്റ്റൾ ഒരു അണ്ടർബാരൽ ഗ്രനേഡ് ലോഞ്ചർ വെടിമരുന്ന് എന്നിവ ഇവരിൽ നിന്ന് കണ്ടെത്തി സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്

നോവൽ കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തൽക്കാലം അവസാനിപ്പിച്ചതിനാൽ ഉടൻ ബിൽ മേശപ്പുറത്ത് വക്കില്ല

പ്രത്യേക അതിർത്തി ചെക്പോസ്റ്റുകൾ ഒഴികെ ഇന്തൃ ബംഗ്ലാദേശ് ഇന്തൃ നേപ്പാൾ ഇന്ത്യ ഭൂട്ടാൺ ഇന്ത്യ മ്യാൻമർ അതിർത്തികളിലെ എല്ലാ യാത്രകളും ഇന്നലെ രാത്രി മുതൽ തന്നെ നിരോധിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു

എൽ മത്സർണ്ട്ട്ൾ വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന് ബി സി സി ഐ പ്രസിഡന്റ് സൌരവ് ഗാംഗുലി

മത്സരങ്ങളുടെ നടത്തിപ്പിനെപറ്റി ഉറപ്പില്ലാത്ത ഈ സാഹചര്യത്തിൽ മറ്റൊരു പദ്ധതിക്ക് രൂപം നൽകുന്നത് അനുയോജ്യമല്ല ടൂർണമെന്റിന് ഇതുവരെ ബി സി സി ഐ സമയപരിധികളൊന്നും നിശ്ചയിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു

എല്ലാ ആഴ്ചകളിലും സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചർത്തു

സംസ്ഥാനത്തെ മുഴുവൻ ആരോഗൃ സംവിധാനങ്ങളും ഏതു സാഹചരൃത്തെയും നേരിടാൻ സജ്ജമായിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ വൈറസ് ബാധയെ ചെറുക്കാനെടുത്ത നടപടികൾ അദ്ദേഹം വിലയിരുത്തി

രോഗബാധയെപ്പറ്റി പരിഭ്രാന്തരാകേണ്ടതില്ലെന്നു മാർഗ്ഗനിർദ്ദേശങ്ങൾ പാളിക്കണമെന്നും മുഖ്യമന്ത്രി മമത ബാനർജി അറിയിച്ചു

ഇവർ അടുത്തിടെ ഇറ്റലി സന്ദർശിച്ചിരുന്നു പ്രതിരോധ നടപടികൾ ഊർജ്ജിതപ്പെടുത്താനും നിരീക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു

സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ പാർക്കുകൾ മൃഗശാല ജിംനേഷ്യം തുടങ്ങിയവയും അടച്ചിടും ജനങ്ങൾ ഒത്തുചേരലുകൾ ഒഴിവാക്കണമെന്നും സർക്കാർ അറിയിച്ചു

സെൻട്രൽ റയിൽവേ ഇത് സംബന്ധ്യിച്ചുനിർദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകി യാത്രക്കാർ നിരന്തരമാ്യി സഞ്ചരിക്കുന്നതിനാൽ ചൂടുവെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന നടപടികൾ തുടരുന്നതായി റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു പാൻട്രി കാറിൽ ശുചീകരണ നടപടികൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്

സി കോച്ചുകളിലെ എല്ലാ കർട്ടനുകളും നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ നീക്കം ചെയ്യണം